ജെ

പാർട്ടി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു

രണ്ടാമത്തെ മത്സരം ്രിഅഫ്മ്ഗാനിസ്ഥാനും ന്യൂസിലാന്റും തമ്മിൽ

ഇന്ന് രാവിലെ കൊച്ചിയിലെ നാവിക വിമാനത്താളത്തിൽ പ്രത്യേക ഹെലിക്കോപ്ടറിലാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത് ക്ഷേത്രദർശനത്തിനുശേഷം ബി ജെ

സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റടുത്ത ശേഷമുള്ള ശ്രീമോദിയുടെ ആദ്യ പൊതു സമ്മേളനമാണ് ഇത് ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ പി സദാശിവം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു

ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനുശേഷം നടന്ന ബി ജെ പിയുടെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാടിനെ ശുചിത്വ പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏവരും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രമല്ല രാഷ്ട്ര സേവനത്തിനാണ് ബി ജെ

മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും പ്രത്യേക വകുപ്പുകളായി പരിഗണിച്ച് ഈ മേഖലകളിൽ സമഗ്രവികസനത്തിന് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി

മാലദ്വീപിൽ ആദ്യ സന്ദർശനം നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി പ്രസിഡന്റ് ഇബ്രാഹീം മുഹമ്മദ് സ്വാലിഹും മുതിർന്ന രാഷ്ട്ര പ്രമുഖന്മാരുമായും കൂടിക്കാഴ്ച നടത്തും മാലദ്ധീപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി രാജ്യ സുരക്ഷ സാമ്പത്തിക വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കും സന്ദർശനത്തോടനുബന്ധിച്ച് തീരദേശ നവീകരണ സംവിധാനത്തിന്റെയും ദ്ദേശീൽ ് സുരക്ഷാ സേനയുടെ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘൂർട്ടന്റവും നടക്കും

മാലദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീലങ്കയിലെത്തും ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രഥമ ലക്ഷ്യം

ജയശങ്കർ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യെൽ വാങ് ചുക്കുമായി കൂടിക്കാഴ്ച നടത്തി ഹിമാലയൻ രാഷ്ട്രത്തലവന്മാരുടെ മാർഗനിർദ്ദേശം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ പ്രത്യേക സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചതായി ശ്രീ

നേരത്തെ ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടയ് ഷെറിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്തിരുന്നു അതോടൊപ്പം ജല ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി താന്ത്രി ഡോർജിയുമായി ശ്രീ

വിശദവിവരങ്ങളുമായി ലിൻസ

ആഗോള വ്യാപാര ശൃംഖല ലോക വ്യാപാര സംഘടന ഡിജിറ്റൽ വ്യാപാരം എന്നീ മേഖലകളെപ്പറ്റി ശ്രീ ഗോയൽ ചർച്ച നയിക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ മന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

വ്യാപാരം നിക്ഷേപം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി സഹകരണം സൃഷ്ടിക്കാൻ ഈ യോഗത്തിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃവസായ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം ഗവൺമെന്റിന്റെ അനുമതി കൂടാതെയുള്ള സ്ഥാനമാറ്റം ഗുരുതരമായ നിയമ ലംഘനമാണെന്നാണ് മന്ത്രാലയം വിജ്ഞാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് സംഘടനാ ചുമതലയുള്ളവരെ നീക്കം ചെയ്യുകയോ പുതിയ ഭാരവാഹിയെ ക്ഷണിക്കുകയോ ചെയ്യുന്നതിന് ഒരുമാസം മുൻപ് മന്ത്രാലയത്തെ രേഖാമൂലം അറിയിക്കണമെന്ന് വിജ്ഞാപനം വ്യക്തമാക്കുന്നു

കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്തിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നല്കിയിട്ടുണ്ട്

ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ശുക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ജനങ്ങൾ ് ജ്യാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറീയിച്ചു

സംഘത്തിലുള്ള മൂന്ന് പേരെ സൈന്യം പിടികൂടിയതായാണ് സൂചന ഏറ്റുമുട്ടൽ തുടരുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പോർട്ടലിലൂടെ പൌരന്മാരുടെ അഭിപ്രായംകൂടി ഉൾപ്പെടുത്തിയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ജനാധിപത്യ പ്രക്രിയയിൽ വിവിധ്യ മേഖ്ലയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഇതിലൂടെ പ്പ്ഉർപ്പാ്ക്കുന്നുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

സഗ്മ നയിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി എൻ

യ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി പദവി നൽകി

അരുണാചൽ പ്രദേശ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളിൽ വിജയിച്ചതോടെയാണ് എൻ

പി യ്ക്ക് ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാനായത് മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് അരുണാചൽപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടി സ്ഥാനമായിരുന്നു ഇതുവരെ എൻ

പിയ്ക്ക് ഉണ്ടായിരുന്നത്

ബി എസ്

സാത്രി്ത് സ്ഥകാര്യ വിദ്യാലയ വിഭാഗത്തിൽ നിന്നും സി ബി

സ്ക് ്യുടെ അംഗീകാരത്തിനായി ഏകലവ്യ സ്കൂളുകൾ അപേക്ഷിക്കണമെന്ന് ആദിവാസി മന്ത്രാലയത്തിനു നൽകിയ കത്തിൽ ബോർഡ് വ്യക്തമാക്കി

ബി എസ് സി യിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്

ചെക്ക് റിപ്പബ്ലിക്കിന്റെ മാർക്കറ്റാ വോൺട്രോസോവ ഓസ്ട്രേലിയൻ താരം ആഷ്ലി ബാർട്ടിയെ നേരിടും അതേസമയം ഇന്നലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ച പുരുഷ സെമി ഫൈനൽ ഇന്ന് വീണ്ടും നടക്കും